പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പശ്ചിമബംഗാളിൽ തെരഞ്ഞെടുപ്പ് റാലികളെ അഭ്ദ്യസ്ംബോധന ചെയ്യും

വൈകിട്ട് കോഴിക്കോട്ടെത്തും നാളെ അദ്ദേഹം വയനാട്ടിൽ നാമനിർദ്ദേശ ്പത്രിക സമർപ്പിക്കും സംസ്ഥാനത്ത് പ്പത്രികാസമർപ്പണം തുടരുന്നു വോട്ടർ ന് ബോധവല്കരണ്ത്തിനുള്ള തെരഞ്ഞെടുപ്പ് ഗീതം ഗവർണർ പ്രകാശനം ചെയ്തു

ഇടയുണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം സൂര്യാഘാതത്തിനെതിരെ ജാഗ്രത പാലിക്കാൻ നിർദ്ദേശം ഐ

കിങ്സ് മുംബൈ ഇന്ത്യൻസിനെ നേരിടും

പ്രധാനമന്ത്രി നരേന്ദ്ര മോദി ഇന്ന് അരുണാചൽപ്രദേശിൽ തിരഞ്ഞെടുപ്പ് റാലിയെ അഭിസംബോധന ചെയ്തു ജനക്ഷേമമാണ് ബിജെപി യുടെ മുഖ്യ അജണ്ടയെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു വിശ്വാസ്യതയും അഴിമതിയും തമ്മിലുള്ള പോരാട്ടമാണ് ഈ തെരഞ്ഞെടുപ്പിൽ നടക്കുന്നത് നഗരങ്ങളിലുള്ള എല്ലാ സൌകര്യങ്ങളും ഗ്രാമങ്ങളിലും എത്തിക്കുമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു പ്രധാനമന്ത്രി ഇന്ന് പശ്ചിമബംഗാളിൽ ബി ജെ പി യുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കും വടക്കൻ ബംഗാളിലെ സിലിഗുരിയിൽ തെരഞ്ഞെടുപ്പ് റാലിയെ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യും കൊൽക്കത്ത ബ്രിഗേഡ് മൈതാനത്തു സംഘടിപ്പിക്കുന്ന റാലിയിലും അദ്ദേഹം പങ്കെടുക്കും

ശ്രീ രാഹുൽ ഗാന്ധിയുടെ സന്ദർശ്നത്തോട് അനുബന്ധിച്ച് എൻ

ജിയുടെ നേതൃത്യത്തിൽ ശക്തമായ സുരക്ഷ ക്രമീകരണങ്ങളാണ് ഏർപ്പ്ടുത്തിയിരിക്കുന്നത്

എ

ബിജെപി പട്ടിക ലോക സഭാ തെരഞ്ഞെടുപ്പിൽ ബിജെപി മൂന്ന് പേരുടെ സ്ഥാനാർത്ഥി പട്ടിക പ്രസിദ്ധീകരിച്ചു കേരളത്തിൽ തൃശൂർ മണ്ഡലത്തിൽ രാജ്യസഭാ എം പിയും ചലച്ചിത്ര നടനുമായ സുരേഷ് ഗോപി മത്സരിക്കും ന്യൂഡൽഹിയിൽ ബിജെപി കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മിറ്റിയാണ് പട്ടിക പ്രസിദ്ധീകരിച്ചത് ബിജെപി യുടെ പതിനഞ്ചാമത് സ്ഥാനാർത്ഥി പട്ടികയാണിത് തൃശൂരിന് പുറമെ ഗുജറാത്തിലെ സൂറത്തിലെയും മഹേസനയിലേയും സ്ഥാനാർത്ഥികളെയും ബിജെപി പ്രഖ്യാപിച്ചു

മൂന്നാംഘട്ട വോട്ടെടുപ്പിനുള്ള പത്രികാ സമർപ്പണം നാളെ അവസാനിക്കുകയാണ് വെള്ളിയാഴ്ച പത്രികകളുടെ സൂക്ഷ്മ പരിശോധന നടക്കും പത്രിക പിൻവലിക്കാൻ തിങ്കളാഴ്ച വരെ സമയമുണ്ട്

ഗീതത്തിന്റെ ഡിവിഡി ഇന്ന് തിരുവന്ന്ട്പു്രത്ത് ഗവർണർ പി

സ്വീപ്പിന്റെ ഭാഗമായുള്ള വിവിധ പോസ്റ്ററുകളും ഗവർണർ ഷ്ട്രകാശനം ചെയ്തു

ചിത്രിയുടെ ശബ്ദത്തിലാണ് തെരഞ്ഞെടുപ്പ് ഗാനം ഒരുക്കിയിട്ടുള്ളത്

മുഖ്യതിരഞ്ഞടുപ്പ് ഓഫീസർ ടിക്കാറാം മീണ്യുടേതാണ് തെരഞ്ഞെടുപ്പ് ഗീതം എന്ന ആശയം

ജി ഡയറക്ടറും മുൻചീഫ് സെക്രട്ടറിയും ഗാനരചയിതാവുമായ കെ ജയകുമാറിന്റെ വരികൾക്ക് മാത്യു ടി ഇട്ടിയാണ് സംഗീതം നൽകിയത് വോട്ടു ചെയ്യാൻ തയ്യാറെടുക്കൂ വോട്ടർ എന്നതിൽ അഭിമാനിക്കൂ തുടങ്ങിയ സന്ദേശങ്ങളാണ് നാലു മിനിട്ടുള്ള ഗാനം മുന്നോട്ടു വയ്ക്കുന്നത് സാംസ്കാരിക സാമൂഹ്യ ദേശഭക്തി ആശയങ്ങൾ ഉൾപ്പെടുത്തിയാണ് ഗാനം ഒരുക്കിയതെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ടിക്കാറാം മീണ പറഞ്ഞു ന്യൂസ് ഡെസ്ക് ആകാശവാണി പ്രകാശ് ബാബു കൊട്ടാരക്കര സബ്ജയിലിൽ റിമാൻഡിൽ കഴിയുന്ന കോഴിക്കോട് എൻ ഡി എ സ്ഥാനാർത്ഥി പ്രകാശ്ബാബുവിന് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ കോടതി അനുമതി നല്കി പത്തനംതിട്ട റാന്നി ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് പത്രിക സമർപ്പിക്കാൻ അനുമതി നല്കിയത് ശബരിമലയിൽ ചിത്തിര ആട്ട വിശേഷദർശനത്തിന് എത്തിയ സ്ത്രീയെ ആക്രമിച്ചെന്ന കേസിലാണ് പ്രകാശ്ബാബുവിനെ കോടതി റിമാന്റ് ചെയ്തത്

രാജ്യം മുഴുപ്പ്നും ബിജെപിയെ തോൽപിക്കുന്നവർ ഒറ്റക്കെട്ടായി മുന്നേറ്റുമ്പോൾ ഇടതുപക്ഷത്തെ പരാജയപ്പെടുത്താനാണ് കോൺഗ്രസ്സ് ല്ക്ഷ്യമിടുന്നതെന്ന് അദ്ദേഹം കൊച്ചിയിൽ മീറ്റ് ദ ഫ്രിസ്ട് പ്രിപാടിയിൽ പറഞ്ഞു

സ്ഥാനാർത്ഥി കെ

ഡി എഫ് നേതാക്കൾക്കൊപ്പം കളക്ടറേറ്റിലെത്തിയാണ് ബാലഗോപാൽ ജില്ലാ കളക്ടർ ഡോ

കോഴിക്കോട് പ്രചാരണ പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കേരളത്തിലും തമിഴ്നാട്ടിലും ഉൾപ്പെടെ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ദക്ഷിണേന്ത്യയിൽ ശക്തമായ സഖ്യം ഇതിനകം രൂപപ്പെട്ടിട്ടുണ്ട് ആന്ധ്രയിലും തെലങ്കാനയിലും പ്രാദേശിക കക്ഷികളും ശക്തമാണെന്നും അദ്ദേഹം പറഞ്ഞു എറണാകുളം എറണാകുളം ജില്ലയിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ പുരോഗമിച്ചു വരുകയാണ് സമാധാനപരവും നീതി പൂർവ്വകവുമായ തെരഞ്ഞെടുപ്പ് ഉറപ്പാക്കുന്നതിൽ ജില്ലാ ഭരണകൂടം എല്ലാ മുൻകരുതലുകളും എടുത്തിട്ടുണ്ട്

ചൂട് സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ ചൂട് വർദ്ധിക്കുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണകേന്ദ്രം അറിയിച്ചു ആലപ്പുഴ പാലക്കാട്ജില്ലകളിൽ ശരാശരി താപനില്ലിമൂന്നു മുതൽ നാലു ഡിഗ്രി സെൽഷ്യസ് വരെ വർധിക്കും പ്ര തിരുവനന്തപുരംകൊല്ലംപത്തനംതിട്ട് കോട്ടയം എറണാകുളംഇടുക്കിതൃശ്ശൂർമല്ലപ്പുറംകോഴിക്കോട്കണ്ണൂർ കാസർകോട് ജില്ലകളിൽ രണ്ടു മുതൽ മൂന്നു വരെ ഡിഗ്രി സെൽഷ്യസാണ് വർധിക്കുക്കു സൂര്യഘാതം ഒഴിവാക്കാൻ തികഞ്ഞ ജാഗ്രത പാലിക്ക്ണ്മെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പു നല്കി

അടുത്ത മൺസൂൺ വരെ കേരളത്തിനാവശ്യമായ വൈദ്യുതിക്കുള്ള എല്ലാ സംവിധാനങ്ങളും ഒരുക്കിയിട്ടുണ്ടെന്ന് ബോർഡ് അധികൃതർ വൃക്തമാക്കി കേരളത്തിലെ പ്രസരണ വിതരണ ശൃംഖല ശക്തിപ്പെടുത്താനുള്ള പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ്

എൽ ഐ പി എല്ലിൽ ഇന്ന് ചെന്നൈ സൂപ്പർ കിങ്സ് മുംബൈ ഇന്ത്യൻസിനെ നേരിടും

ജയ്പൂരിൽ ഇന്നലെ നടന്ന മത്സരത്തിൽ ബംഗളുരു റോയൽ ചലഞ്ചേഴ്സിനെ ഏഴ് വിക്കറ്റിന് തോൽപിച്ച് രാജസ്ഥാൻ സീസണിലെ ആദ്യ ജയം സ്വന്തമാക്കി

ഈ ജയത്തോടെ രാജസ്ഥാൻ രണ്ട് പോയിന്റുമായി ആറാം സ്ഥാനത്തെത്തി

മത്സ്യബന്ധനത്തിന് പോയ ഫൈബർ വള്ളത്തിൽ ബോട്ടിടിച്ച് കൊല്ലം തങ്കശ്ശേരിയിൽ മത്സ്യത്തൊഴിലാളി മരിച്ചു പള്ളിത്തോട്ടം സ്വദേശിയാണ് മരിച്ചത് രണ്ട് പേർക്ക് പരിക്കേറ്റു

ഇടിച്ച ബോട്ടിനായി തിരച്ചിൽ തുടരുകയാണെന്ന് തീരസംരക്ഷണ സേന അറിയിച്ചു

തൃശ്ശൂരിലെ ആധാരമെഴുത്തുകാരനായ വി ബി അനിരുദ്ധന്റെ ലൈസൻസാണ് രജിസ്ട്രേഷ്ട്രികുപ്പ് ഡെപ്യൂട്ടി ഇൻസ്പെക്ടർ റദ്ദാക്കിയത് അരിമ്പൂർ കുന്ന്ത്തങ്ങാടി യിൽ നടന്ന ഭൂമി വില്പനയിലാണ് ക്രമക്കേട്ട് കണ്ടെത്തിയത്

മൂന്നാറിൽ വിനോദ സഞ്ചാരത്തിനെത്തിയ സംഘം സഞ്ചരിച്ചു കാർ അടിമാലി പതിനാലാം മൈൽ പള്ളി പടിക്ക് സമീപം കെ എസ് ആർ ടി സി ബസുമായി കൂട്ടിയിടിച്ചാണ് അപകടം നടന്നത്

ഐ റിസർവ്വ് ബാങ്കിന്റെ ദൈമാസ ധനനയ അവലോകന യോഗം തുടരുന്നു നാളെ ധനനയം ആർ

ഐ പ്രഖ്യാപിക്കും ഇന്നലെയാണ് യോഗം ആരംഭിച്ചത് റിപ്പോ നിരക്കും റിവേഴ്സ് റിപ്പോ നിരക്കും നാളെ പ്രഖ്യാപിക്കും ജിപിഎസ് ജിപിഎസ് ഘടിപ്പിച്ച വാഹനങ്ങളിൽ മാത്രമേ ജില്ലയിൽ ജലവിതാനം നടത്താവൂ എന്ന നിർദ്ദേശം പാലിക്കണമെന്ന് പത്തനംതിട്ട ജില്ലാ കളക്റ്റർ അറിയിച്ചു വാഹനങ്ങളിൽ വിതരണം ചെയ്യുന്ന ജലം ശുദ്ധമാണെന്ന് ഉറപ്പാക്കേണ്ടതുണ്ടെന്നും ജില്ലാ ഭരണകൂടത്തിന്റെ അനുമതി ഇല്ലാത്ത വാഹനങ്ങളിൽ നടത്തുന്ന ജലവിതരണം ശിക്ഷാർഹമാണെന്നും അദ്ദേഹം പറഞ്ഞു

പിണറായി രാജ്യത്തെ ഏറ്റവും വലിയ വിപിത്തായ വർഗീയതയെ നേരിടുന്നതിനുപകരം സംവ്വിപ്പരിവാറിനോട് സമരസപ്പെടാനായിരുന്നു എ്സ്മും കോൺഗ്രസിന് താൽപ്പര്യമെന്ന് മുഖ്യമന്ത്രി പിണറായി പ്പിജ്യൻ പറഞ്ഞു മലപ്പുറം പാർല്മെന്റ് മണ്ഡലം എൽഡിഎഫ് സ്ഥാനാർഥി വി പി സാനുവിന്റെ തെരഞ്ഞെടുപ്പ് പൊതുയോഗം മഞ്ചേരിയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു പിണറായി

ഡി എഫ് സ്ഥാനാർഥി രമ്യ ഹരിദാസിനെതിരെ ഹീന പ്രയോഗങ്ങൾ നടത്തി സ്ത്രിത്വത്തെ അപമാനിച്ച എൽ ഡി